ബിജെപി തെരഞ്ഞെടുപ്പ് സമിതിയോഗ്യം ഏകാച്ചിയിൽ തുട രുന്നു സംസ്ഥാനത്ത് ഭൂമിയുടെ ന്യായപ്പിൽവർധന നാളെ നിലവിൽ വരും ഫോനി ചുഴലിക്കാറ്റ് കണക്കിലെടുത്ത് ഒഡീഷ തീരത്ത് നാവിക സേ നയും പ്രതീര്ർ ക്ഷാ സേ നയും ജാഗ്രത പുലർത്തുന്നു ഇന്ന് സാർവ്വദ്ദേശീയ തൊഴിലാളി ദിനം ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ ഡൽഹിയെ നേരി ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ട് ചെയ്യുന്നതിനായി സിപിഐഎം ഭരണസംവിധാനം ഉപയോഗപ്പെടുത്തിയെന്ന് കെപി സിസി പ്രസിഡന്റ് മുല്ലപ്പളളി രാമചന്ദ്രൻ കുറ്റപ്പെടുത്തി

മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബൂത്തായ പിണറായിലാണ് എല്ലായ്പ്പോഴും വ്യാപകമായി കള്ളവോട്ട് നടക്കുന്നതെന്നും മുല്ല പ്പളളി ആരോപിച്ചു മുസ്സിംലീഗ് പ്രവർത്തകർ കള്ളവോട്ട് ചെയ്യു ന്നതായി തന്റെ രാഷ്ട്രീയ അനുഭവത്തിൽ ഇതുവരെ ഉണ്ടായിട്ടി ല്ലെന്നും അന്വേഷണം നടത്തി കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും മുല്ലപ്പള്ളി പറഞ്ഞു

അക്ര മരാഷ്ട്രീയത്തിന് അറുതിവരുത്തുക എന്ന ലക്ഷ്യവുമായാണ് കോൺഗ്രസ് മുന്നോട്ടു പോവുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കള്ളവോട്ട് വിഷയം പുറത്തുകൊണ്ടുവന്ന മാധ്യമപ്രവർത്ത കന് ഭീഷണിയുണ്ടെന്ന് കെപിസിസി പ്രസിഡന്റ് അറിയിച്ചു കേരളം മുഴുവൻ അദ്ദേഹത്തോടൊപ്പമുണ്ടാവുമെന്നും മുല്ലപ്പളളി പറഞ്ഞു തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കഴിഞ്ഞാൽ കെപിസിസി അഴിച്ചുപണിയും ജംബോ കമ്മിറ്റി ഉണ്ടാവില്ലെന്നും മുതിർന്ന നേതാക്കളുമായി ഇക്കാര്യം ചർച്ച ചെയ്തെന്നും അദ്ദേഹം അറി യിച്ചു കഴിവുളളവരെ നേതൃരംഗത്തേക്ക് കൊണ്ടുവരണമെന്നാണ് പൊതു അഭിപ്രായമെന്നും മുല്ലപ്പള്ളി അറിയിച്ചു തൃക്കരിപ്പൂരിൽ കള്ളവോട്ടുണ്ടായെന്ന ആരോപണത്തിൽ ജില്ലാ വരണാധികാരികൂടിയായ കലക്ടർ പ്രാഥമിക റിപ്പോർട്ട് കൈമാറി പ്രിസ്റ്റൈഡിംഗ് ഓഫീസറിൽ നിന്നും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്നും വിശദമായ മൊഴി എടുക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു മുസ്ലിം ലീഗ്ഗിനെ മോശമായി ചിത്രീകരിക്കാൻ നടത്തുന്ന ശ്രമ ത്തിന്റെ ഭാഗമാണ് സിപിഐഎം ഉന്നയിക്കുന്ന കള്ളവോട്ട് ആരോ പണമെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെപിഎ മജീദ് ആരോപിച്ചു കള്ളവോട്ടിനെ അങ്ങേയറ്റം എതിർക്കുന്ന പാർട്ടി യാണ് ലീഗെന്നും മജീദ് കോഴിക്കോട്ട് പറഞ്ഞു യുഡിഎഫ് വോട്ടുകൾ വോട്ടർപട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന് പ്രതിപ ക്ഷനേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു പേരുകൾ കാരണമില്ലാതെ വോട്ടർപട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്ന് കൊച്ചി യിൽ ചേരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന സമിതിയുടെ ആദ്യയോഗത്തിൽ തെരഞ്ഞെടുപ്പ് അവലോകനമായി രിക്കും മുഖ്യ അജണ്ട ഉച്ചക്ക് ശേഷം സംസ്ഥാന സമിതിയും ചേരു ന്നുണ്ട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ന്യൂനപക്ഷവോ ട്ടുകളുടെ ഏകീകരണം ഉണ്ടായതായി ഒ രാജഗോപാൽ എം എൽ എ അഭിപ്രായപ്പെട്ടു എന്നാൽ ഇതിനെ അതിജീവിച്ച് ബിജെപി സ്ഥാനാർത്ഥി വിജയിക്കുകതന്നെ ചെയ്യുമെന്ന് അദ്ദേഹം കൊച്ചി യിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു എൻ ഡി എ സംവിധാനം കേരളത്തിൽ ഫലപ്രദമല്ലെന്ന് ബിഡി ജെഎസ് വയനാട് ജില്ലാ പ്രസിഡന്റും എസ്എൻഡിപി യോഗം അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ എൻ കെ ്രഷാജി പറഞ്ഞു ലോക ്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ട് മണ്ഡലത്തെ ബി ജെപി ഒരു തരത്തിലും പരിഗണിച്ചില്ലെന്ന് അദ്ദേഹം കൽപ്പറ്റയിൽ കുറ്റപ്പെ ടുത്തി

ദേശീയ നേതൃത്വത്തി ന്റെ അഭ്യർത്ഥനയെ മാനിച്ചാണ് എൻഡിഎ സംസ്ഥാന കൺവീനറും ബിഡിജെഎസ് സംസ്ഥാന അധ്യക്ഷനുമായി തുഷാർ വെള്ളാപള്ളി വയനാട്ടിൽ മത്സരിച്ചതെന്നും എന്നാൽ പ്രചാരണ രംഗത്ത് ബി ജെപി ദ്ദേശീയ നേതാക്കളുടെ അസാന്നിധ്യം തെരഞ്ഞെടുപ്പ് ആവേശത്തെ കെടുത്തിയതായും എൻ കെ ഷാജി പറഞ്ഞു സംസ്ഥാനത്തെ ഭൂമിയുടെ ന്യായവിലവർധന നാളെ നിലവിൽ വരും പത്ത് ശതമാനമാണ് വർധന ബജറ്റിൽ ഉൾപ്പെടുത്തിയ തീരു മാനം മാതൃകാപെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനെ തുടർന്ന് നീട്ടു കയായിരുന്നു

വർഗ്ഗീയ പരാമർശങ്ങൾ നടത്തിയ സമാജ്വാദി പാർട്ടി നേതാവ് അസംഖാന് പ്രചാരണത്തിന് വീണ്ടും വിലക്കേർപ്പെടുത്തി

ജമ്മു കശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ന്യൂഡൽ ഹ്ഗിയിൽ ചേർന്ന സമ്പൂർണ്ണയോഗം തീരുമാനമാകാതെ പിരിഞ്ഞു രാഷ്ട്രപതി ഭരണം നിലനിൽക്കുന്ന സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നട്ടത്തുന്നത് സംബ ന്ധിച്ച് നിയമവിദഗ്ദ്ധരുടെ അഭിപ്രായം തേടാൻ കമ്മീഷൻ തീരു മാനിച്ചു പാക്കിസ്ഥാൻ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് തല വൻ മസൂദ് അസ്ഹറിനെ ആഗോള ഭൂീകരവാദിയായി പ്രഖ്യാപി ക്കുന്ന കാര്യത്തിൽ ഐക്യരാഷ്ട്രസ്ഭ ഇന്ന് തീരുമാനമെടുത്തേ ക്കും ഇക്കാരൃം പരിഗ്ദണിക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ അൽഖയ്ദ ഉപരോധ സമിതി യുണൈറ്റഡ് നാഷൻസിൽ യോഗം ചേരുന്നുണ്ട് കഴിഞ്ഞ പത്തു വർഷമായി മസൂദ് അസ്ഹറിനെ ആഗോള ഭീകരവാദിയായി പ്രഖ്യാപിക്കാൻ ഐക്യരാഷ്ട്രസഭ ശ്രമം നടത്തു ന്നുണ്ടെങ്കിലും ർക്ഷാസമിതിയിലെ സ്ഥിരാംഗമായ ചൈന വീറ്റോ ചെയ്യുന്നതു മൂലം പരാജയപ്പെടുകയായിരുന്നു അസ്ഹറിനെ ആഗോളഭീകരവാദിയായി പ്രഖ്യാപിക്കുന്നത് സംബന്ധിച്ച പ്രശ്നം ശരിയായ രീതിയിൽ പരിഹരിക്കപ്പെടുമെന്ന് വിദേശകാര്യമന്ത്രാ ലയ വക്താവ് ജംഗ്ഷുവാങ് ബിജിങ്ങിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതാണ് പുതിയ പ്രതീക്ഷകൾക്ക് വഴിയൊരുക്കുന്നത് ഫോനി ചുഴലിക്കാറ്റ് കണക്കിലെടുത്ത് ഒഡിഷാ തീരത്ത് നാവി കസേനയുടെയും തീരദേശസംരക്ഷണസേനയുടെയും കപ്പലു കളും ഹെലികോപ്റ്ററുകളും ഏതു പ്രതിസന്ധിയും നേരിടാൻ സജ്ജമാക്കി ദേശീയ ദുരന്ത നിവാരണ സേനാ അംഗങ്ങളെയും വിവിധ പ്രദേശങ്ങളിൽ വിന്യസിച്ചു തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഫോനി ചുഴലിക്കാറ്റ് ഒഡീഷയിലെ ഗോപാൽപൂരിനും ചാന്ദ്ബാ ലിക്കുമിടയിൽ തീരം കടന്നേക്കുമെന്നാണ് കേന്ദ്ര ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ

വടക്കൻ ആന്ധ്രാപ്രദേശ് ഒഡീഷ പശ്ചിമബംഗാൾ എന്നി വിടങ്ങളിൽ ശനിയാഴ്ച വരെ കനത്ത മഴയ്ക്ക് സ്ഥാധൃതയുണ്ട് തമിഴ്നാട് പുതുച്ചേരി ദക്ഷിണ ആന്ധ്ര തീരങ്ങളിലും ബംഗാൾ ഉൾക്കടലിലെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിലും കടൽ പ്രക്ഷു ബ്ധമായിരിക്കും ഇന്ന് സാർവദേശീയ തൊഴിലാളി ദിനം

കോഴിക്കോട് ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റേയും തൊഴിൽ വകുപ്പിന്റേയും സംയുക്താഭിമുഖൃത്തിൽ മെയ്ദിന സ് പോർട്സ് മല്ബാർ ക്രിസ്തൃൻ കോളജ് ഗ്രൌണ്ടിൽ നടന്നു

മത്സരങ്ങൾ കേരള സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ടി പി ദാസൻ ഉദ്ഘാടനം ചെയ്തു ആഴമേറിയ ജലാശങ്ങളിലും കരിങ്കൽക്വാറികളിലും രക്ഷാപ്രവർത്തനം നടത്താൻ അഗ്നിരക്ഷാ സേനയുടെ സ്കൂബ ഡൈവിംഗ് സംഘത്തെ കോഴിക്കോട് ജില്ലയിൽ സജ്ജമാക്കും

ഗുളികപ്പുഴ കക്കയംഡാം റിസർവോയർ കുറ്റ്യാടി ഇരുവഴിഞ്ഞിപ്പുഴ എന്നിവിടങ്ങൽ ജില്ലാതല പരിശീലനവും ഇവർക്കു നല്കും കണ്ണൂരിൽ നിന്ന് കെ എസ് ആർ ടി സി ബെംഗലൂരുവിലേക്ക് കൂടുതൽ സർവീസുകൾ ആരംഭിച്ചു അന്തർസംസ്ഥാന ലക്ഷറി ബസുകൾ അനിശ്ചിതകാല പണിമുടക്ക് മുന്നറിയിപ്പ് നൽകിയ പശ്ചാ ത്തലത്തിലാണ് കെ എസ് ആർ ടി സി കൂടുതൽ സർവീസ് നടത്തു ന്നത്

പിഴയായി അഞ്ചര ല്ക്ഷത്തോളം രൂപ ഇൌടാക്കി

കൂവ്വപ്പാടം പ്രഭുവി നെയാണ് സൌത്ത് റെയിൽവെസ്റ്റേഷന് സ്മീപം പിടികൂടിയത് നഗ രത്തിലെ കഞ്ചാവ് വിൽപന് ഏജന്റുമാർക്ക് നൽകുന്നതിനായി തിരി പ്പൂരിൽ നിന്ന് ട്രെയിൻ മാർഗ്ഗം കൊണ്ടുവന്നതായിരുന്നു കഞ്ചാവ് ഇന്ത്യൻ പ്രീമിയർലീഗ് ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർകിങ്സ് ഡൽഹി ക്യാപ്പിറ്റൽസുമായി ഏറ്റുമുട്ടും രാത്രി എട്ടിന് ചെന്നൈ എം എ ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം മധുക്കര സ്റ്റേഷനിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതി നാൽ ട്രെയിൻ സമയങ്ങളിൽ ക്രമീകരണം ഏർപ്പെടുത്തിയതായി ദക്ഷിണറെയിൽവെ അറിയിച്ചു

കോയമ്പത്തൂർ കണ്ണൂർ പാസഞ്ചർ ഷൊർണൂരിൽ നിന്നാണ് ആരംഭിക്കുക

പാലക്കാട് ജില്ലയിൽ മലയോര മേഖലകളിലെ വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് വനം പൊതുമരാമത്ത് വകുപ്പുകൾ സംയുക്തമായി പദ്ധതികൾ നടപ്പാക്കും

കാട്ടാനശല്യം രൂക്ഷമായ സ്ഥലങ്ങളിൽ സൌരോർജ്ജ വേലി നിർമാണം വേഗത്തിലാക്കാനും തീരുമാനിച്ചു കിഫ്ബിയിൽ ഉൾപ്പെടുത്തിയാണ് വന്യമൃഗ പ്രതിരോധ പദ്ധതികൾ നടപ്പാക്കുന്നത് കാലിക്കറ്റ് സർവകലാശാല ഇൻർസോൺ കലോത്സവം സുൽത്താൻ ബത്തേരി സെന്റ് മേരീസ് കോളജിൽ ആരംഭിച്ചു ഇന്നും നാളെയും സ്റ്റേജിതര മത്സരങ്ങളാണ്

പാലക്കാട് നഗരത്തിലെ മാലിന്യപ്രശ്നത്തിൽ നഗരസഭ ജില്ലാ കളക്ടർക്ക് വിശദമായ റിപ്പോർട്ട് നൽകി മാലിന്യനീക്കം നിലച്ചിട്ട് രണ്ടു മാസം പിന്നിട്ട സാഹചര്യത്തിലാണ് കലക്ടർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്

മെത്രപൊലീത്ത ട്രസ്റ്റി പദവി യിൽ നിന്ന് അദ്ദേഹം നൽകിയ രാജി പാത്രിയാർക്കീസ് ബാവ അംഗീകരിച്ചു

സഭയിലെ ആഭ്യന്തര പ്രശ്നങ്ങളെ തുടർന്നാണ് കാതോലിക്ക ബാവ സ്ഥാനം ഒഴിഞ്ഞത് കാതോലിക ബാവ പദവിയിൽ തുടരണമെന്നും പകരം ഭരണ ച്ചുമതലക്കാരനെ എത്രയും വേഗം തെരഞ്ഞെടുക്കണമെന്നും പാത്രി യാർക്കീസ് ബാവ ആവശ്യപ്പെട്ടു എറണാകുളം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ വേനൽമഴ തുട രുകയാണ് കൊച്ചി നഗരത്തിൽ ഇടുയോടുകൂടിയ കനത്തമഴയാണ് ലഭിക്കുന്നത് അർബു ദ രോ ഗ വു മായി ബന്ധപ്പെട്ട ബോധ വൽക്ക രണ പ്രദർശനം അതിജീവനം കോഴിക്കോട് ബീച്ചിൽ ഇന്ന് തുടങ്ങും ക്യാൻസർ ചികിത്സയില്ലാത്ത രോഗമല്ല ജീവിതത്തിന്റെ അവസാ നവുമല്ല എന്ന പ്രമേയത്തെ ആധാരമാക്കിയാണ് പ്രദർശനം കുടും ബശ്രീ സിഡിഎസ് നടപ്പാക്കുന്ന സമഗ്ര അർബുദ നിവാരണ പദ്ധ തിയായ ജീവനം നാലാഘട്ടത്തിന്റെ ഭാഗമായാണ് പരിപാടികൾ

സംവിധായകൻ അടൂർഗോപാല്കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും